വാളയാർ കേസ് സിബിഐ അന്നേഷ്ട്രിക്ക്ണമെന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് ഏഹെക്കോടതി

ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയാണ് ഈ ഭിന്നശേഷി സംവരണമെന്ന് മന്ത്രി കെ

ശൈലജ വ്യക്തമാക്കി

അധികമായ ഒരു ശതമാനം ഏതെല്ലാം തസ്തികകളിൽ ഏതെല്ലാം അംഗപരിമിത വിഭാഗങ്ങൾക്ക് അനുവദിക്കാമെന്ന് എക്സ്പേർട്ട് കമ്മിറ്റി പരിഗണിച്ച് ഉത്തരവ് പ്രത്യേകമായി പുറപ്പെടുവിക്കും അന്ധതയും കാഴ്ച്ചക്കുറവുമുള്ളവർ ബധിരരോ കേൾവിക്കുറവ് വളരെയധികമുള്ളവരോ ലോക്കോമോട്ടോർ ഡിസെബിലിറ്റി അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി കുഷ്ഠം ഭേദമായവർ പൊക്കക്കുറവുള്ളവർ ആസിഡ് ആക്രമണ ഇരകൾ എന്നീ മൂന്ന് വിഭാഗങ്ങൾക്ക് പുറമേ ഓട്ടിസം ബുദ്ധിപരമായ ഭിന്നശേഷിയുള്ളവർ പഠനവൈകല്യമുള്ളവരും അസ്വസ്ഥതയുള്ളവരും ഒന്നിൽ മാനസിക കുടുതൽ ഭിന്നശേഷിയുള്ളവർ എന്നീ രണ്ട് വിഭാഗങ്ങളെക്കൂടി ചേർത്താണ് അധികമായി ഒരു ശതമാനം സംവരണം അനുവദിക്കുന്നത്

ഉത്തരവ് നിലവിൽ പ്പ് പ്പന്ന പശ്ചാത്തലത്തിൽ ഈയൊരു ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥിക്ൿക്ക് ഏർപ്പെടുത്തിയിരുന്ന ഗ്രേസ് മാർക്ക് സിസ്റ്റം നിർത്തലാക്കിക്കൊണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്

കേര്ളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് എസ്

നിർമിതബുദ്ധി അടിസ്ഥാനമാക്കി പോലീസിന്റെ സഹായവും സാന്നിധ്യവുമില്ലാതെ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽവരെ എത്തിനിലക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കുറ്റാന്വേഷണമികവിൽ രാജ്യത്തെ ഏതൊരു പോലീസ് സേനയെക്കാളും ്മുന്നിലാണ് കേരള പോലീസെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ സാങ്കേതികസംവിധാനങ്ങളും സേവനങ്ങളും ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ടാണ് പോലീസ് ടെക്നോളജി സെൻറർ ആരംഭിക്കുന്നത് ഇത് പൂർത്തിയാകുമ്പോൾ ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികവേറിയ സ്ഥാപനമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു

സമ്മേളനത്തോടനുബന്ധിച്ച് ഗാന്ധിജിക്ക് കേരള നിയമസഭ ആദരാഞ്ജലി അർപ്പിച്ചു ഗാന്ധിപാതയിൽ ഇരുട്ട് നിറയ്ക്കാനുള്ള ഗ്രശമങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്ന് സ്പീക്കർ സഭയെ ഓർമിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളേയും ചിന്താഗതികളേയും തിരികെ പിടിക്കുകയാകണം അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ ചെയ്യേണ്ടതെന്നും സ്പീക്കർ പറഞ്ഞു നവോത്ഥാന സംരംഭങ്ങളോട് ഗാന്ധിജി പുലർത്തിയ ഹൃദയബന്ധം വൈക്കം സത്യാഗ്രഹത്തിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തിൽ നിന്നും വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായിട്ടു വിജയൻ പറഞ്ഞു

ജി പെട്രോനെറ്റിന്റെ സി

മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്കൂൾ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ യാത്രാ സൌകര്യം ഒരുക്കുക മലിനീകരണം കുറയ്ക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു വാളയാർ കേസ് ഹൈക്കോടതി വാളയാറിൽ ദളിത് സഹോദരിമാർ കൊല്ലപ്പെട്ട സംഭവം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞുക്കു നിലവിലുള്ള പോക്സോ കോടതിവിധിക്കെതിരെ അപ്പീൽ നൽകാവുന്നതാണ്

എന്നാൽ ക്കേസിൽ ഗവൺമെന്റിന് അപ്പീൽ പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞു കേസിൽ അപ്പീൽ പോകുമെന്നും അതിനുള്ള നടപടി ക്രമങ്ങൾ ആരംഭിച്ചതായും ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച സ്വകാര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി മാവോയിസ്റ്റുകൾ വയനാട് വൈത്തിരി താലൂക്കിൽ വീണ്ടും സായുധ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുളളതായി റിപ്പോർട്ട് ലക്കിടിയിലെ സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുകയായിരുന്ന ബൈക്ക് യാത്രികനെ രണ്ടംഗ മാവോയിസ്റ്റുകൾ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി ലഭിച്ചിട്ടുണ്ട് ബുധനാഴ്ച്ച ഉച്ചയോടെയാണ് സംഭവം

മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് സാഹിത്യകാരൻമാരായ യു

ചാത്തനാത്ത് അച്യുതനുണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളും മന്ത്രി സമ്മാനിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ആനന്ദിന്

സാഹിത്യരംഗത്തെ സമഗ്രസംഭാവനകൾ മുൻനിർത്തി നല്കുന്ന സംസ്ഥന ഗവൺമെന്റിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണിത് ഗോവർദ്ധന്റെ യാത്രകൾ മരുഭൂമികൾ ഉണ്ടാകുന്നത് മരണസർട്ടിഫിക്കറ്റ് ആൾക്കൂട്ടം ജൈവമനുഷ്യൻ എന്നിവ ആനന്ദിന്റെ പ്രധാനകൃതികളാണ്

എസ്

യുടെ ആദ്യ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു

അടുത്ത മാസം നാലാം തീയതി വരെയാണ് അപേക്ഷ നൽകാനുള്ള സമയം